ഒന്നാംഘട്ട വോട്ടെടുപ്പിനുള്ള സമയക്രമം തെരഞ്ഞെടുപ്പ് ക്മ്മീഷൻ പ്രഖ്യാപിച്ചു

കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ആർ

ഡി നേതാവ് ലാലു പ്രസാദിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി

കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജെ

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഭവന വായ്പ പലിശ നിരക്ക് കുറച്ചു

ഇതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ സംസ്ഥാന നിയമസഭകളിലേക്കും ഒറ്റഘട്ടമായി നാളെ വോട്ടെടുപ്പ് നടക്കും

സിങ് സത്യപാൽ സിങ് മഹേഷ് ശർമ്മ എന്നിവരും ആർ എൽ ഡി നേതാക്കളായ അജിത്സിങ് ജയന്ത്ചൌധരി എന്നിവരും കോൺഗ്രസിലെ ഇമ്രാൻമസൂദും ഉൾപ്പെടുന്നു

മുൻമന്ത്രി പവൻസിങ് ഘടോവർ കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് ബിജെപിയിലെ പ്രദാൻ ബറുവ രാമേശ്വർ തെലി അസം ഗണപരിഷത്തിലെ മണി മാധവ് മഹന്ത എന്നിവരാണ് മത്സരിക്കുന്ന പ്രമുഖർ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എന്നാൽ ഇടതു തീവ്രവാദ്യ്ശക്തമായ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമയിക്ക്മത്തിൽ വൃത്യാസം വരുത്തിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ രാവിലെ ഏഴിന് ആരംഭിച്ച് വൈകിട്ട് അഞ്ചുമണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും അസം അരുണാചൽ പ്രദേശ് മിസോറം സിക്കിം ത്രിപുര വെസ്റ്റ് എന്നിവിടങ്ങളിലും വൈകിട്ട് അഞ്ച് മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും എന്നാൽ ഔട്ടർ മണിപ്പൂർ നാഗാലാന്റ് മേഘാലയ എന്നിവിടങ്ങളിൽ രാവിലെ ഏഴിന് തുടങ്ങി വൈകിട്ട് നാല് മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും

ഈ ഘട്ടത്തിൽ സീതാമഢി മധുബനി മുസാഫർപൂർ സരൺ ഹാജിപൂർ എന്നീ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ മെയ് ആറിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത്

പത്രിക സമർപ്പണിർ ഇന്നലെ അവസാനിച്ചു മറ്റന്നാൾ വരെ പത്രിക പിൻവലിക്കാം

സിദ്ധി ഷഹദോൾ ജബൽപൂർ മാണ്ട്ല ബാലഘട്ട് ചിന്ദ്വാര എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്

കോൺഗ്രസ് നേതാക്കളും വൈദവ് ഗെലോട്ട് രവി ജുംജുൺപാല ആർ

ബെഗുസാരിയിൽ സിപിഐ സ്ഥാനാർത്ഥിയായി കനയ്യകുമാർ പത്രിക നൽകി ന്യൂസ് ഡെസ്ക് ആകാശവാണി

നക്സൽ ആക്രമണം നടന്ന ജില്ലകളില്ലൂകളക്ടർമാർ ജില്ലാ പോലീസ് മേധാവികൾ എന്നിവരു്മായി ്സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ വീഡിയോ കോൺഫറൻ്സിംഗിലൂടെ അടിയന്തര ചർച്ച നടത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മേഖലകളിൽ വേണ്ട മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളാൻ ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് അപേക്ഷ തള്ളിയത് ഗൂഢാലോചന മാത്രമാണ് ലാലുപ്രസാദിന്റെ പേരിലുള്ള കുറ്റമെന്ന് അദ്ദേഹത്തിനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപീൽ സിബൽ പറഞ്ഞു കേസിന്റെ നല്ല വശങ്ങൾ ഹൈക്കോടതി തീരുമാനിക്കുമെന്നും സുപ്രീം കോടതി ജാമ്യപേക്ഷ മാത്രമാണ് പരിഗണിക്കുന്നതെന്നും ബെഞ്ച് വ്യക്തമാക്കി

പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കരുതെന്ന കേന്ദ്രത്തിന്റെ വാദമാണ് സുപ്രിംകോടതി നിരസിച്ചത് സവിശേഷ ഷ്ട്രിഗണനയുള്ള സുപ്രധാന രേഖകൾ അനധികൃത മാർഗ്ഗത്തിലൂടെയാണ് ഹർജിക്കാർ സ്വന്തമാക്കിയതെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി ഫ്രാൻസിൽ നിന്നും റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ഇടപാടുരേഖകൾക്ക് സൂവിശേഷ പരിഗണനയില്ലെന്ന് കോടതി വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ്

കൌൾ കെ

ഭീകര പ്രവർത്തനത്തിന് ഫണ്ട് എത്തുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ്

കസ്റ്റഡിയിൽ വാങ്ങിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി യാസിൻ മാലികിനെ തിഹാർ ജയിലിലേക്ക് മാറ്റി ഫെബ്രുവരി മുതൽ കസ്റ്റഡിയിലാണ് യാസിൻ മാലിക്

സൌരാഷ്ട്രയിലെ ജുനഗഡിലും ദക്ഷിണ ഗുജറാത്തിൽ താപി ജില്ലയിലെ സോൺഗഡിലും പൊതുയോഗി്ങ്ങളിൽ പ്രധാനമന്ത്രി സംസാരിക്കും ജുനഗഡ് പോർബന്തർ മണ്ഡലിങ്ങളിലെ പ്രവർത്തകർ ജുനഗഡിലെ പൊതുയോഗ്ഗത്തിൽ അണിനിരക്കും ബർദോളി നവ്സാരി ല്ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകരെയാണ് സ്മോൺഗഡിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക ബിജെപി അധ്യക്ഷനും ഗാന്ധിനഗർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ അമിത്ഷാ ബിജെപി നേതാക്കളായ ശ്രീമതി നിർമ്മല സീതാരാമൻ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ഗുജറാത്തിൽ പ്രചാരണം നടത്തും

ബി

ഇന്ന് രാവിലെ എറണാകുളത്തെ സ്വകാര്യ ആശുപ്പത്രിയിൽ നിന്നു വിലാപയാത്രയായി മൃതദേഹം ക്യോട്ടയത്തേക്ക് കൊണ്ടു വരികയാണ് തൃപ്പൂണിത്തുറ്റു ക്ലെവക്കം തലയോലപ്പറമ്പ് കടുത്തുരുത്തി എന്നിവ്വിടങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു കോട്ടയം തിരുനക്കര മൈതാനിയിൽ പൊതുദർശനത്തിനു വച്ച ശേഷം വിലാപയാത്രയായി ജന്മനാടായ മരങ്ങാട്ട്പിള്ളിയിലേക്ക് കൊണ്ടുപോകും

നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് പാലാ സെന്റ് തോമസ് കത്തിഡ്രൽ സെമിത്തേരിയിലാണ് സംസ്ക്കാരം അതിനുശേഷം അനുശോചന സമ്മേളനം ചേരും

മാണിയുടെ നിര്യാണത്തെ തുടർന്ന് കേസ് നിലനിൽക്കാത്തതിനാലാണ് ഹൈക്കോടതി കേസിൽ നടപടികൾ അവസാനിപ്പിച്ചത്

സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊടുങ്കാറ്റിലും പേമാരിയിലും നിരവധി വൃക്ഷങ്ങൾ കടപൂഴകി വീണു വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു

നിക്ഷേപത്തിലെ ഗണ്യമായ വർധനയും ഉപഭോഗ രംഗത്തെ ത്വരിത മുന്നേറ്റവും വളർച്ചയ്ക്ക് ഏറെ സഹായകമായതായി ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു

എഫിന്റെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗത്തിനു മുന്നോടിയായാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്

കാർഡ് സ്വീകരിക്കുന്നതിന് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ അനുവദിച്ചിരുന്ന സമയപരിധി നീട്ടി

വിദേശ പാസ്പോർട്ടിനൊപ്പം തന്നെ യാത്രയ്ക്കാവശ്യമായ സാധുവായ രേഖയായി ഇതു പരിഗണിക്കുമെന്ന് ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി